ജെ

നിർവ്വാഹക സമിതി സമാപന യോഗത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും

റഷ്യൻ സന്ദർശനത്തിനായി വ്യാഴാഴ്ച യാത്ര തിരിക്കും

വരെ നടക്കുന്ന ധന സമാഹരണയജ്ഞത്തിൽ എല്ലാവരും പങ്കാളികളാകണമെന്ന് മുഖൃമന്ത്രി പിണറായി വിജയൻ

നവോമി ഒസാക കരസ്ഥമാക്കി

ജെ പി ദേശീയ നിർവ്വാഹക സമിതിയോഗത്തിന്റെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ക്ന്ന് അഭിസംബോധന ചെയ്യും ദ്വിദിന നിർവ്വാഹക സമിതി യ്യോർഫ് ശ്രീ മോദിയും ബി ജെ

സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ദേശീയ നേതാക്കൾ നിർവ്വഹകസമിതി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്

ജെ പിയ്ക്ക് എതിരെയുള്ള പ്രതിപക്ഷ മഹാസഖ്യം എന്നത് മിഥ്യാ ബോധവും തട്ടിപ്പും കാപട്യവുമാണെന്ന് ബി ജെ പി അധ്യക്ഷൻ അമിത്ഷാ ഇന്നലെ പറഞ്ഞിരുന്നു

പി പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം അവരുടെ മോഹവും ഭിന്നിപ്പിക്കൽ രാഷ്ട്രീയവുമാണ് വൃക്തമാക്കുന്നതെന്നും അത് വ്യക്തമായ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ടുവെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞതായി ശ്രീമതി നിർമ്മലാ സീതാരാമൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഇന്ത്യയെ നിർമ്മിക്കാൻ ബി ജെ പി ഗവൺമെന്റ് ശ്രമിക്കുമ്പോൾ ഇന്ത്യയെ തകർക്കാനുള്ള രാഷ്ട്രീയമാണ് കോൺഗ്രസ്സിന്റേതെന്ന് ബി ജെ

ദേശീയ പൌരത്വ രജിസ്ട്രി നടപ്പാക്കുന്നതിന് ഗവൺമെന്റ് പ്രതിജ്ഞാ ബദ്ധമാണ് നിയമവിരുദ്ധമായ നുഴഞ്ഞു കയറ്റം നടത്താൻ അനുവദിക്കുകയില്ലെന്ന് ശ്രീ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും ഡൽഹിയിൽ ഈ അധ്യയന വർഷം പഠനത്തിനെത്തിയ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം മേഖലയിലെ വാർത്താവിനിമയ ഗതാഗത സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താൻ നരേന്ദ്രമോദി ഗവൺമെന്റും പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു

റഷ്യൻ ഫെഡറേഷന്റെ ഉപപ്രധാനമന്ത്രി യൂറി ബോറിസ്വോയും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് സമ്മേളനം ശാസ്ത്ര സാങ്കേതികം വാണിജ്യ നിക്ഷേപം തുടങ്ങിയ പരസ്പര ധാരണയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും കഴിഞ്ഞ വാർഷിക സമ്മേളനം ന്യൂഡൽഹിയിലാ്ണ് നടന്നത്

ഉത്തരഗോവാ ജില്ലയിൽ സംഘടിപ്പിച്ച ആയുർവേദ ന്യൂറോ തെറാപ്പി സൌജന്യ മെഡിക്കൽ ക്യാമ്പിൽ സംസാരിപ്പിക്കുകയായിരുന്നു അദ്ദേഹം

ഡൽഹിയിൽ അന്താരാഷ്ട്ര ഗതാഗത ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം എളുപ്പത്തിൽ പ്രാപ്തമാകുന്നതും പരിസ്ഥിതി സൌഹൃദവുമായിരിക്കണം ഭാവിയിലെ ഗതാഗത സംവിധാനങ്ങൾ

ഒ അമിതാഭ് കാന്ത് ആവശ്യപ്പെട്ടു

നേപ്പാൾ കമ്മ്യൂണ്ടിസ്റ്റ് പാർട്ടി സഹ അധ്യക്ഷനും പ്രധാനമന്ത്രിയുമായ പുഷ്പ്പ് ക്യമർ ദഹലുമായി ന്യൂഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് പ്രധാനമന്ത്രി ഇത് വ്യക്തമാക്കിയത് ദഹലുമായി മുമ്പു നടന്നു കൂടിക്കാഴ്ചകൾ അനുസ്മരിച്ച ശ്രീ മോദി ഇന്ത്യ നേപ്പാൾ ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾക്ക് നന്ദി രേഖപ്പെടുത്തി ഉഭയകക്ഷി താൽപര്യമുള്ള വിഷയങ്ങളിൽ ഇരു നേതാക്കളും ചർച്ച നടത്തി

മന്ത്രിമാരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ജില്ലകളിൽ ധനസമാഹരണത്തിന് നേതൃത്വം കൊടുക്കുകയാണ് ഈ മഹായജ്ഞത്തിൽ മുഴുവൻ പേരും അവരവരുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് സംഭാവന നൽകണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

രാജ്യത്ത് നിന്നും നിരക്ഷരത തുടച്ച് മാറ്റുന്നതിൽ വിദ്യാർത്ഥികളുടെ പങ്ക് സുപ്രധാനമാണെന്ന് ചടങ്ങിൽ കേന്ദ്ര മാനവവിഭവ വികസന വകുപ്പ്മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി അരുൺകുമാർ

വരും വർഷങ്ങളിൽ പൂർണ്ണമായ സാക്ഷ്ടരത്താ ലക്ഷ്യം നേടാൻ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് നിർക്ഷ്രരായ വൃക്തികളിൽ പഠനവേഗത വർദ്ധിപ്പിക്കുന്നതിന് പൂഠന്റോപകരണങ്ങളും അധ്യാപനരീതിയും ലളിതമാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യത്ത് നിന്നും നിരക്ഷരത ഇല്ലാതാക്കുവാൻ സാക്ഷരതാ മിഷൻ നടത്തുന്ന പ്രവർത്തനങ്ങളും അദ്ദേഹം എടുത്തു പറഞ്ഞു പുതിയ ഒരു ഇന്ത്യ പടുത്തുയർത്തുന്നതിന് ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും ഇതിന് രാജ്യത്തെ എല്ലാ ജനങ്ങളും സാക്ഷരത നേടിയവർ ആയിരിക്കണമെന്നും സമയബന്ധിതമായി സമ്പൂർണ്ണ സാക്ഷരത നേടിയെടുക്കുമെന്നും സ്വച്ച് ഭാരത് മിഷൻ രാജ്യത്തുടനീളം വ്യാപിപ്പിക്കുമെന്നും ശ്രീ

എസ് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം ജപ്പാന്റെ നവോമി ഒസാക കരസ്ഥമാക്കി

എസ് ഗ്രാൻഡ് സ്ലാം സ്ഫൈനലിൽ മോശം പെരുമാറ്റത്തിന് അംപയർ സെറീന വില്യംസിന് പിഴ വിധിച്ചു

ഹനുമാ വിഹാരി രവീന്ദ്ര ജഡേജ എന്നിവരാണ് ക്രീസിൽ

പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ അടുത്ത അനുയായിയും പാകിസ്ഥാൻ തെഹ്രീക്ക് ഇ ഇൻസാഫ് പാർട്ടിയുടെ സ്ഥാപക അംഗവുമാണ് ശ്രീ

ജനീവയിൽ പ്രാഥമിക ചർച്ചകളിൽ പങ്കെടുക്കുന്നിത്രനായി ഹുതി പ്രതിനിധികൾ എത്തിയിരുന്നില്ലെന്ന് ഐക്യരാഷ്ട്രിസ്ട് പ്രത്യേക പ്രതിനിധി മാർട്ടിൻ ഗ്രിഫിത്സ് പറഞ്ഞു